പ്രധാനമന്ത്രി വിലയിരുത്തി ചിലവ് കുറഞ്ഞ പരിശോധന വ്യാപകമാക്കണമെന്ന് നരേന്ദ്രമോദി

ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടാൻ ചൈനയ്ക്ക് അധികാരമില്ലെന്ന് വിദേശകാര്യമന്ത്രാലയം ഇന്ത്യ ചർച്ചക്ക് സന്നദ്ധമായെന്ന പാക് അവക്ടുശവാദവും തള്ളി

തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും

വാക്സിൻ സംഭരണം സൂക്ഷിക്കൽ വിതരണം തുടങ്ങിയവയ്ക്ക് ഏർപ്പെടുത്തിയ സംവിധാനങ്ങളുടെ കാരൃക്ഷമതയാണ് വിലയിരുത്തിയത് കോവിഡിനെ ചെറുക്കാൻ രാജ്യത്തെ പാരമ്പര്യവൈദ്യമേഖല നടത്തുന്ന ശ്രമങ്ങളേയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രോഗത്തിനെതിരെ തുടർച്ചയായ ജാഗ്രതയും കരുതലും തുടരാനും അദ്ദേഹം നിർദേശിച്ചു

വി കെ പോൾ ശാസ്ത്രഉപദേഷ്ടാവ് കെ വിജയരാഘവൻ മുതിർന്ന ശാസ്ത്രജ്ഞർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു

പാക് പ്രധാനമന്ത്രിയുടെ സുരക്ഷാകാര്യ ഉപദേശസംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയ പരാമർശം ദുരൂഹവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് വിദേശമന്ത്രായല വക്താവ് അനുരാജ് ശ്രീവാസ്ഥവ പറഞ്ഞു ഇന്ത്യൻ മാധ്യമത്തിന് നൽകി അഭിമുഖത്തിലെ പരാമർശം ആഭ്യന്തരപരാജയം മറച്ചുവച്ച് തലക്കെട്ടുകളിൽ ഇടംപിടിക്കാനുള്ള പാക് നീക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ദാരിദ്ര്യത്തിനും വിശപ്പിനും കാരണമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഭക്ഷ്യവ്യവസ്ഥ കൂടുതൽ ശക്തമാക്കാനുമാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്

സംഘടനയ്ക്ക് രാജ്യവുമായുള്ള ദീർഘകാല ബന്ധത്തിന്റെ സ്മരണയ്ക്കായായണ് നാണയം പുറത്തിറക്കുന്നത്

കേന്ദ്ര കൃഷിമന്ത്രി ധനമന്ത്രി വനിതാ ശിശു വികസന മന്ത്രി തുടങ്ങിയവർപങ്കെടുക്കും രാജ്യത്തൊട്ടാകെയുള്ള അംഗൻവാടി കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ഓർഗാനിക് ഹോർട്ടികൾച്ചറൽ മിഷനുകൾ എന്നിവ ഓൺലൈനായി പരിപാടിയുടെ ഭാഗമാക്കും

പകരം ഈ വായ്പയെ സംസ്ഥാനങ്ങളുടെ മൂലധന ബാധ്യതയായും ധനകമ്മി നികത്താനുള്ള സഹായമായും കണക്കാക്കും

ഏതുതരം പായ്ക്കറ്റുകളിലും ഇവ ഇനിമുതൽ കയറ്റി അയയ്ക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുതിയ വിജ്ഞാപനം ഇറക്കി

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദർശനം സുഗമമായി നടത്തുതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മല കയറാൻ പ്രാപ്തരാണെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ദർശനത്തിനെത്തുന്നവർ കരുതണം

ദർശനത്തിനെത്തുന്നവർ കൂട്ടാ് ചേർന്ന് സഞ്ചരിക്കാൻ പാടില്ല

കുളിക്കുന്നതിനായി പ്രത്യേകം ഷവറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ ആശുപത്രികളും സജ്ജമാക്കിയിട്ടുണ്ട് വെർചൽ ക്യൂ രജിസ്ട്രേഷൻ കൌണ്ടർ കെഎസ്ആർടിസി ടിക്കറ്റ് കൌണ്ടർ തുടങ്ങിയ ഇടങ്ങളിൽ പോലീസിന്റെയും ആരോഗ്യപ്രവർത്തകരുടെയും പരിശോധന ഉണ്ടായിരിക്കും ന്യൂസ്ഡസ്ക് ആകാശവാണി

സമാന നീക്കമുണ്ടാകുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ നടപടി

വെബ്സൈറ്റിൽ നിന്നും ഫലം അറിയാം

എന്നാൽ അവസാന ഓവറിൽ നേരിട്ട ആദ്യ പന്ത് നിക്കോളാസ് പുരാൻ സിക്സറാക്കിയതോടെ പഞ്ചാബിന് നാടകീയജയം സ്വന്തമായി ഇന്ന് അബുദാബിയിൽ നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ഇന്നലെ രാത്രി നടന്ന വാശിയേറിയ മത്സരത്തിൽ കനേഡിയൻതാരം ജാസൻ ആന്തണി ഹോ ഷ്യൂവിനെ പരാജയപ്പെടുത്തി

ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകളും കേരള തീരത്തു മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണങ്ങളും പിൻവലിച്ചു

ഇതു കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കില്ല